ഉത്തർപ്രദേശിലെ ബാരാബങ്കി ജില്ലയിൽ വ്യാജമദ്യം കഴിച്ച് അഞ്ച് പേർ മരിച്ചു

ഇന്ത്യയുടെ ആദ്യ മത്സരം ജൂൺ അഞ്ചിന്

പിദേശകാര്യമന്ത്രാലയമാണ് ഇക്കാര്യം അറിയിച്ചത് ഷാങ്ഹായി സഹകരണ സംഘടനയുടെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന കിർഗിസ്ഥാൻ പ്രസിഡന്റ് സുരോൺബേ ജീൻബെക്കോവ് മൌറീഷ്യസ് പ്രധാനമന്ത്രി പ്രവിന്ത് ജുഗ്നൌത്ത് എന്നിവരെയും ചടങ്ങിലേക്ക് ക്ഷണിച്ചതായി മന്ത്രാലയം അറിയിച്ചു ബംഗാൾ ഉൾക്കടലിന്റെ തീരത്തുള്ള രാജ്യങ്ങളുടെ സാമ്പത്തിക സാങ്കേതിക സഹകരണ സംഘടനയാണ് ബിംസ്റ്റെക് ബംഗ്ലാദേശ് മ്യാൻമർ ശ്രീലങ്ക തായ്ലന്റ് നേപ്പാൾ ഭൂട്ടാൻ എന്നീ രാജ്യങ്ങളാണ് ബിംസ്റ്റെകിലുള്ളത് വ്യാഴാഴ്ച വൈകിട്ട് ഏഴ് മണിയ്ക്ക് രാഷ്ട്രപതി ഭവനിലാണ് ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ്

തുടർച്ചയായ രണ്ടാം തവണയാണ് സംസ്ഥാന മുഖ്യമന്ത്രിയായി ശ്രീ പേമാഖണ്ഡു ചുമതലയേൽക്കുന്നത്

ഒരു ടെലിവിഷൻ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് പിൻഗാമി പാർട്ടിയ്ക്കകത്ത് നിന്നുതന്നെയായിരിക്കുമെന്നും തന്റെ കുടുംബാംഗങ്ങൾ ആവില്ലെന്നും അദ്ദേഹം വൃക്തമാക്കി നാളെയാണ് നവീൻ പട്നായിക് ഒഡീഷ മുഖ്യമന്ത്രിയായി തുടർച്ചയായ അഞ്ചാം തവണയും സത്യപ്രതിജ്ഞ ചെയ്യുന്നത്

ആഗോളമായി ഇന്ത്യയുടെ സ്വാധീനശക്തി വർദ്ധിച്ചുവരുന്നതിന്റെ തെളിവാണ്ണിതെന്ന് മന്ത്രാലയം അറിയിച്ചു

നഗർങ്ങളിലെയും സമൂഹങ്ങളിലെയും ജീവിത നിലവാരം ഉയർത്താൻ നൂതന സാങ്കേതിക വിദ്യ എന്നതാണ് യു എൻ ഹാബിറ്റാറ്റ് അസംബ്ലിയുടെ പ്രമേയം

അഞ്ച് പേർ ചികിൽസയിലാണ് രാംനഗർ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള റാണിഗഞ്ച് ഗ്രാമത്തിലെ മദൃശാലയിൽ നിന്ന് മദൃം കഴിച്ചവരാണ് ദുരന്തത്തിനിരയായത്

കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടിയെടുക്കാൻ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉത്തരവിട്ടു സംഭവവുമായി ബന്ധപ്പെട്ട് രാംനഗർ എസ് ഐ യെയും സർക്കിൾ ഇൻസ്പെക്ടറെയും സസ്പെന്റ് ചെയ്തതായി ഐ പ്രവീൺകുമാർ സിംഗ് അറിയിച്ചു സംഭവവുമായി ബന്ധപ്പെട്ട് മറ്റൊരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്

ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് ജസ്റ്റിസ് അനിരുദ്ധ ബോസ് എന്നിവർ ഉൾപ്പെട്ട ബെഞ്ചാണ് ഹർജി തള്ളിയത്

ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ട് ഞായറാഴ്ച രാത്രിയാണ് സി ബി ഐ രാജീവ്കുമാറിന് നോട്ടീസ് അയച്ചത്

ശാരദാ ചിട്ടി തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ടാണ് ചോദൃചെയ്യൽ

കടൽ വഴി ഭീകരർ എത്തുമെന്ന വാർത്തകളെ തുടർന്ന് ജാഗ്രത ശക്തിപ്പെടുത്തിയിട്ടുണ്ട്

ഇവർക്ക് ലഭിക്കുന്ന വിവരങ്ങൾ കോസ്റ്റ് ഗാർഡിനും തീരദേശ സേനയ്ക്കും കൈമാറുമെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ അറിയിച്ചു

ജില്ലയില് കുച്ചായ് വനമേഖലയിൽ തെരച്ചിൽ നടത്തിയ സി ആർ പി എഫ് പോലീസ് സേനയ്ക്ക് നേരെ ഐ ഇ ഡി സ്ഫോടനം നടത്തുകയായിരുന്നു സ്ഫോടനത്തിന് പിന്നിൽ നക്സൽ പ്രവർത്തകരാണെന്ന് തിരിച്ചറിഞ്ഞു

ആറ് പേർക്ക് പരിക്കേറ്റു

ഇന്നലെ രാത്രി ആഗോളായ് ഗ്രാമത്തിനടുത്തായിരുന്നു അപകടമുണ്ടായത് സംഭവത്തിൽ രാജസ്ഥാൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ട് അനുശോചനം രേഖപ്പെടുത്തി

ഇന്ന് ആരംഭിക്കുന്ന പാർലമെന്റിന്റെ ആദ്യ സിറ്റിംഗിൽ അദ്ദേഹം ചുമതലയേൽക്കുമെന്നാണ് സൂചന

ഇതോടെ ഒളിമ്പിക്ട് യോഗ്യതയും റാഹി സ്വന്തമാക്കി

ഇംഗ്ലണ്ടിലും വെയ്ൽസലുമായി നടക്കുന്ന മത്സരത്തിൽ ലോക കപ്പിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സമ്മാനത്തുകയാണ് വിജയിയെ കാത്തിരിക്കുന്നത് കൂടുതൽ വിവരങ്ങളുമായി റിനൽ ജോസഫ് ആതിഥേയരായ ഇംഗ്ലണ്ടും ദക്ഷിണാഫ്രിക്കയും തമ്മിലാണ് ആദ്യ മത്സരം

തുടർന്ന് ഒമ്പതിന് നടക്കുന്ന മത്സരത്തിൽ ഓസ്ട്രേലിയയാണ് ഇന്ത്യയുടെ എതിരാളി

ലോക കപ്പിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സമ്മാനത്തുകയാണ് ഇത്

ആദ്യ സന്നാഹ മത്സരത്തിൽ ന്യൂസിലന്റിനോട് ഇന്ത്യ പരാജയപ്പെട്ടിരുന്നു

ഹാൻഫ്മാനെയാണ് നദാൽ പര്യാജ്യപ്പെടുത്തിയത്